രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ഉത്തർപ്രദേശിലെ ലക്നൌ കാൺപൂർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും

സംസ്ഥാനത്ത് ഇന്ന് മുതൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധൃത കനത്ത ജാഗ്രത

സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് ജൂനിയർ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് മലേഷ്യയിൽ തുടക്കമാകും

ന്യൂഡൽഹിയിൽ ഇന്തോ റഷ്യ ബിസിനസ്സ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

വിശദാംശങ്ങളുമായി കവിത

ഡി എ ഗവൺമെന്റിന്റെ ഘടനാപരമായ പരിഷ്ക്കാരങ്ങൾ സാമ്പത്തിക മുന്നേറ്റത്തിന് വഴി തെളിച്ചുവെന്ന് ശ്രീ

ഇന്ത്യയുടെ പുരോഗതിയിൽ റഷ്യ ഏറ്റവും പ്രധാന പങ്കാളിയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള നിക്ഷേപ മേഖലയിൽ ഇന്ത്യ നിരവധി പരിഷ്ക്കാരങ്ങൾ നടത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയും റഷ്യയും വ്യാവസായിക സഹകരണത്തിൽ ഇനിയും മുന്നേറാനുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാധന സേവന നീക്കത്തിനുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ

ഇന്ത്യയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള പ്രഗൽഭരായ വിദ്യാർത്ഥികളുമായി ഇരുനേതാക്കളൂം ചർച്ച നടത്തി വിദ്യാർത്ഥികൾ സംയുക്തമായി വികസിപ്പിച്ച പ്രോജിക്ടുകൾ തദവസരത്തിൽ ഇരുനേതാക്കൾക്കും സമ്മാനിച്ചും ദ്വിദ്വീന സന്ദർശനം പൂർത്തിയാക്കി പ്രസിഡന്റ് പുടിൻ ഇന്ന് മടങ്ങും ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

ന്യൂഡൽഹിയിൽ നടന്ന ഇന്തൃ റഷ്യ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൈഡ്രോ കാർബൺ സ്വർണ്ണം വജ്രം തടി ഔഷധം കൃഷി റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് അവസരമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്തൃയുമായി സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ തന്ത്രങ്ങൾ മെനയുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത റഷ്യൻ സാമ്പത്തിക വികസന്ദ മന്ത്രി മാക്സിം ഒറേഷ്കിൻ പറഞ്ഞു

കാൺപൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യക്ഷേമ പരിപാടിയുടെ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിക്കൂം കാൺപൂരിൽ ടാലന്റ് ഡെവലപ്മെന്റ് കൌൺസിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിൽ അഭിസംബോധന ചെയ്യുകയും സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ശ്യാംലാൽ പർഷാദിന്റെ പ്രതിമയുടെ അനാച്ഛാദന കർമ്മം നിർവ്വഹിക്കുകയും ചെയ്യും ലക്നൌവിൽ നാലാം അന്താരാഷ്ട്ര സയൻസ് ഫെസ്റ്റിവൽ രാഷ്ട്രപതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ഇന്നലെ കേന്ദ്രശാസ്ത്ര സാങ്കേതിക വകുപ്പ്മന്ത്രി ഹർഷവർദ്ധൻ ഇന്നലെ തുടക്കം കുറിച്ചിരുന്നു പുതിയ ഇന്തൃ സൃഷ്ടിക്കുന്നതിന് യുവ ശാസ്ത്രജ്ഞൻമാർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ശാസ്ത്രസാങ്കേതിക വിദ്യയെ പ്രോൽസാഹിപ്പിക്കുന്നതിന് കേന്ദ്രം നിരവധി പദ്ധതികൾ ആവിഷ്ക്കരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർഷവർദ്ധൻ പറഞ്ഞു

ആർ

ഇതിന്റെ പേരിൽ ഒരു യഥാർത്ഥ ഇന്ത്യൻ പൌരനെയും ബലിയാടാക്കില്ലെന്ന് ശ്രീ

ഒരു രാജ്യവും അനധികൃത കുടിയേറ്റക്കാരെ അനുവദിക്കില്ലെന്ന് കൊൽക്കത്തയിൽ ഒരു ചടങ്ങിൽ രാം മാധവ് പറഞ്ഞു അസ്സമിൽ ദേശീയ പൌരത്വ രജിസ്റ്റർ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊന്നുമില്ലെന്ന് ബിജെപിയുടെ വടക്ക് ്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രു്മതല വഹിക്കുന്ന ശ്രീ

സി രൂപീകരണം പുരോഗമിക്കുകയാണെന്നും സ്ക്രീംകോടതിയുടെ ദൈനംദിന നിരീക്ഷണത്തിലാണ് ഇതെന്നുർ അദ്ദേഹം വൃക്തമാക്കി

ഇന്നലെ ഭുവനേശ്വറിൽ വച്ച് നടന്ന ഇരു സംസ്ഥാനങ്ങളിലെ ഡി ജി പി മാരുടേയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് ഇടതുപക്ഷ തീവ്രവാദം ചെറുക്കുന്നതിന് ഇരു സംസ്ഥാനങ്ങൾ ചേർന്ന് സംയുക്ത സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒഡീഷ ഡിജിപി ആർ പി ശർമ്മ പറഞ്ഞു

സുപ്രധാന നിരക്കുകളിൽ മാറ്റം വരുത്താതെയുള്ള ധനനയം ഗവൺമെന്റ് സ്വാഗതം ചെയ്യുന്നതായി ശ്രീ ഗാർഗ് അറിയിച്ചു

കാറ്റ് ലക്ഷദ്വീപിൽ നിന്ന് അകന്ന് ഒമാൻ തീരത്തേക്ക് നീങ്ങുന്നതിനാൽ കേരളത്തെ നേരിട്ട് ബാധിക്കില്ല എന്നാൽ ന്യൂനമർദ്ദം കാരണം കേരളത്തീരത്ത് ശക്തമായ കാറ്റുണ്ടാകും ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ അതിശക്തമായ് മഴയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്

ഇത് കണക്കിലെടുത്ത് നാളെ ഇടുക്കിയിലും മലപ്പുറത്തും നേരത്തെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ്പത്തനംതിട്ട വയനാട് ജില്ലകളിൽ ഞായറാഴ്ച വരെയും പാലക്കാട്ട് തിങ്കളാഴ്ച വരെയും ഓറഞ്ച് അലർട്ട് ബാധകമാണ് ഇടുക്കിയിലും മലപ്പുറത്തും തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

പ്രധാനപ്പെട്ട നിരവധി ഡാമുകളിൽ നിന്നും തോട്ടപ്പള്ളി സ്പ്രിൽവേയിൽ നിന്നും വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് കല്ലാർക്കൂട്ടി ്യാം ഇന്ന് തുറക്കും മത്സ്യത്തൊഴിലാളികൾ ഇന്നു മുതൽ കട്ടലിൽ പോകരുതെന്ന് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

നേരത്തെ ഇന്ത്യൻ ബാറ്റിങ്ങിന് മുന്നിൽ അടിതെറ്റിയ ആതിഥേയർക്ക് ഇന്ത്യൻ ബൌളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല

കഴിഞ്ഞ വർഷം ടൂർണ്ണമെന്റിൽ പങ്കെടുത്ത അമേരിക്ക ഇത്തവണ മത്സരത്തിലില്ല പകരം ന്യൂസീലന്റ് ടീമിനെ ചാമ്പൃൻഷിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വെങ്കലമെഡൽ ജേതാവായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ മലേഷ്യയെ നേരിടും

ഇന്നത്തെ മറ്റ് രണ്ട് മത്സരങ്ങളിൽ ആസ്ട്രേലിയ ജപ്പാനെയും ബ്രിട്ടൻ ന്യൂസിലാന്റിനെയും നേരിടും

മനുഷ്യാവകാശ പ്രവർത്തകയായ ഇറാഖി വനിത നദിയ മൊറാദ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ പ്രവർത്തിച്ച ഫിസിഷ്യൻ ഡെന്നിസ് മുക്വേഗ എന്നിവർ ചേർന്നാണ് പുരസ്ക്കാരം പങ്കിട്ടത് കൂടുതൽ വിവരങ്ങളുമായി കവിത

എസ് ഭീകരർ തട്ടിക്കൊണ്ട് പോയി പീഡനങ്ങൾക്ക് ഇരയാക്കിയിരുന്നു

ഇനിയും കണ്ണീര് തോർന്നിട്ടില്ലാത്ത കണ്ണുകളുമായാണ് നദിയ ലോകത്തെ ഉറ്റുനോക്കുന്നത് ലോകം മുഴുവൻ അവിളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോഴും കാതുകളിൽ ഇപ്പോഴും ഐസിസ് ഭീകരരുടെ ഗർജ്ജനമാണ്